ശബരിമലയിൽ സൂപ്രീം കോടതി വിധി അതേപടി നടപ്പാക്കാ നാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ഐഎസ്എൽ ഫുട്ബോളിൽ ബെങ്കലൂരു എഫ്സിക്ക് വിജയം

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയും ജസ്റ്റിസ് എസ്

കൌളും അടങ്ങിയ ഡിവി ഷൻ ബെഞ്ചാണ് ഇക്കാര്യം അറിയിച്ചത്

ശബരിമല വിഷയത്തിൽ സൂപ്രീം കോടതി വിധി അതേപടി നട പ്പാക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെന്ന് പിണറായി വിജയൻ വ്യക്തമാക്കി പെൺകൂട്ടികൾ ചൊവ്വയിലേക്ക് പ്പോവാൻ തയാറെടു ക്കുന്ന നാട്ടിലാണ് യുവതികളുടെ ക്ഷേത്ര പ്രവേശനത്തിനെതിരെ പ്രക്ഷോഭം നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി സംവാദ പരിപാടിയായ നാം മുന്നോട്ടിൽ പറഞ്ഞു കോടതി വിധിക്കെതിരെ ഒരു കൂട്ടർ കൊടിയെടുത്ത് സമരം ചെയ്യു മ്പോൾ ഒരു കൂട്ടർ കൊടിയില്ലാതെ അതോടൊപ്പം ചേർന്നിരിക്കുക യാണ് ശബരിമലയെ സംഘർഷ ഭൂമിയാക്കാനാണ് അവരുടെ ലക്ഷ്യ മെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി ശബരിമല സ്ത്രീ പ്രവേശന കാര്യത്തിൽ സൂപ്രീം കോടതി യിൽ സ്വീകരിക്കേണ്ട നിലപാട് ചർച്ച ചെയ്യാൻ തിരുവിതാംകൂർ ദേവസ്ഥം ബോർഡ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും കേസു മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ദേവസ്വം കമ്മീ ഷണർ ന്യൂഡൽഹിയിലേക്ക് പോകുമെന്ന് ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ അറിയിച്ചു തുലാമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമലയിൽ നടയടച്ചു ശ്രീ ചിത്തിര ആട്ട തിരുനാളിന് നവംബർ അഞ്ചിന് വൈകീട്ട് നട തുറക്കും ആറിന് രാത്രി നടയടയ്ക്കും

അടുത്ത ഒരു വർഷത്തെ ശബരിമല മാളിക പ്പുറം മേൽശാന്തിമാർ അന്ന് ചുമതലയേൽക്കും ശബരിമല വിഷയം ചർച്ച ചെയ്യാൻ നിയമസഭാ സമ്മേളനം വിളി ക്കേണ്ട ആവശ്യം ഇല്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ അഭിപ്രായപ്പെട്ടു

കോടതി വിധിക്കെതിരെ സംസ്ഥാന ഗവൺമെന്റ് ഓർഡിനൻസിന് പ്രസക്തി യില്ലെന്നും കേന്ദ്ര ഗവൺമെന്റാണ് ഇക്കാരൃത്തിൽ എന്തെങ്കിലും ചെയ്യേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല വിഷയത്തിലെ കോൺഗ്രസ് നിലപാട് അവർക്ക് തന്നെ ദോഷം ചെയ്യുമെന്നും കാനം അറിയിച്ചു ശബരിമലയെ കലാപഭൂമിയാക്കിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് ബിജെപ്പി ദേശീയ നിർവാ ഹക സമിതി അംഗം പി

നിരോധ നാജ്ഞ ലംഘിച്ച് നിലയ്ക്കലിൽ എത്തിയതായിരുന്നു അദ്ദേഹം ആചാര ലംഘനത്തിന് മുഖ്യമന്ത്രിക്ക് പശ്ചാത്തപിക്കേണ്ടി വരുമെന്നും കൃഷ്ണദാസ് പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളജിൽ ശുബരിമല മണ്ഡല കാലത്തേ ക്കായി ആരംഭിക്കുന്ന പുതിയ വാർഡിൽ അധിക ജീവനക്കാരെ നിയ മിക്കാൻ ആശുപത്രി വികസന സമിതി യോഗം തീരുമാനിച്ചു റേഡി യോഗ്രാഫർ സെക്യൂരിറ്റി ക്ലീനിംഗ് ജീവനക്കാർ എന്നിവരെ നിയമി ക്കാനാണ് തീരുമാനം ആലപ്പുഴയിൽ ഇന്ന് ബിജെപി കരിദിനം ആചരിക്കും ഇന്നലെ മന്ത്രി ജി സുധാകരന്റെ ഓഫീസിലേക്ക് ബിജെപി നടത്തിയ മാർച്ച് പൊലീസ് തടഞ്ഞതിൽ പ്രതിഷേധിച്ചാണ് കരിദിനമാചരിക്കുന്നത്

തലശേരി മാഹി ബൈപ്പാസ് നിർമ്മാണത്തിന് തറക്കല്ലിടാൻ ഗഡ്ഗരി എത്തുമ്പോഴായിരിക്കും കൂടി ക്കാഴ്ച്ചു സ്ഥലമെടുപ്പിനും പാത നിർമ്മാണത്തിനും ആവശ്യമായ തുക നൽകുന്നതിലെ കാലതാമസമാണ് ദേശീയ പാതാ വികസന ത്തിൽ പ്രധാന തടസമെന്ന് മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിയെ അറിയിക്കും

ഗുജറാത്ത് ഗവൺമെന്റിന്റെ പ്രതിനിധിയായി കേരളത്തിൽ എത്തിയതായിരുന്നു ആഹിർ ഇന്നലെ ജലന്ധറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മുതിർന്ന വൈദികൻ ഫാദർ കുര്യാക്കോസ് കാട്ടുതറയുടെ മൃതദേഹം നാട്ടി ലെത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെ ട്ടു പഞ്ചാബിലെ ദസ്വ ആശുപത്രിയിലാണ് മൃത്ദേഹം സൂക്ഷിച്ചി രിക്കുന്നത്

ബിഷപ് ഫ്രാങ്കോ മുളക്ക ലിനെതിരായ പീഡന കേസുകളിൽ മുഖ്യ സാക്ഷിയായിരുന്നു ഫാദർ കുര്യാക്കോസ് കാട്ടുതറ കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവ്വകലാശാല പ്രൊഫ

സാനുവിനും പ്രൊഫ

ഉണ്ണിത്തിരിക്കും കലാമ ണ്ഡലം ഗോപിക്കും ഇന്ന് ഡീലിറ്റ് ബിരുദം സമ്മാനിക്കും

ചാൻസലർ കൂടിയായ ഗവർണർ പി സദാശിവം ബിരുദദാനം നിർവഹിക്കും മന്ത്രി ഡോ

ജലീലും ചടങ്ങിൽ പങ്കെടുക്കും

വായു മലിനീകരണം ഇല്ലാതാക്കാൻ പടക്കങ്ങൾ സമ്പൂർണമായി നിരോധിക്കണമെന്നായിരുന്നു ഹർജി

അടുത്ത പൊതുതെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി പി

ബിജെപി ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി പുരോഗമന ഗവൺമെന്റിനെ ഭരണത്തിലേറ്റുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സഖ്യം വിജയത്തിലെത്തിയാൽ ഘടക കക്ഷികൾ ചേർന്ന് പ്രധാനമന്ത്രിയെ തീരുമാനിക്കുമെന്നും ചിദംബരം വ്യക്തമാക്കി മസ്ക്കറ്റിൽ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ ജപ്പാനെ മറുപടിയില്ലാത്ത ഒൻപത് ഗോളിന് തോൽപ്പിച്ച് ഇന്ത്യ മൂന്നാം ജയം സ്വന്തമാക്കി ഇന്ന് ഇന്ത്യ മലേഷ്യയെയും നാളെ ദക്ഷിണ കൊറിയ യെയും നേരിടും ഐഎസ്എൽ ഫുട്ബോളിൽ ബെങ്കലൂരു എഫ്സി പൂനെ സിറ്റിയെ തോൽപ്പിച്ചു ഇന്നലെ എതിരില്ലാത്ത മൂന്ന് ഗോളിനായി രുന്നു പൂനെയിൽ ബെങ്കലൂരുവിന്റെ വിജയം ഈ ജയത്തോടെ മൂന്ന് കളിയിൽ ഏഴ് പോയന്റുമായി ബെങ്കലൂരു ഒന്നാം സ്ഥാനത്തെ ത്തി

ഓസ്ട്രേലിയയെ നാലു വിക്കറ്റിനാണ് ഇന്ത്യ തോൽപ്പിച്ചത്

ആദ്യകളിയിൽ ഇന്ത്യ എ യും ബി യും തമ്മിലാണ് മത്സരം കളിക്കാർക്ക് ലോകകപ്പ് സാധ്യതാ പട്ടികയിൽ ഇടം നേടുന്നതിന് അവ സാന അവസരമാണ് ദേവ്ധർ ട്രോഫി മത്സരം

കായികമേള ഇന്ന് സമാപിക്കും കോഴിക്കോട് ജില്ലാ സ്കൂൾ കായികമേളയിൽ മുക്കം ഉപജില്ല ചാമ്പ്യൻമാരായി

സംസ്ഥാനതല മത്സരങ്ങ ളുടെ സെലക്ഷൻ എന്ന നിലയിൽ മാത്രമാണ് ഇത്തവണത്തെ കായി കമേളയെന്ന് സംഘാടകർ അറിയിച്ചു കേന്ദ്രഗവൺമെന്റിന്റെ നിതി ആയോഗ് പദ്ധതി പ്രകാരം ഇടുക്കി ജില്ലയിൽ ആദ്യമായി എയ്ഡഡ് സ്കൂളിൽ ആരംഭിച്ച അടൽ ടിങ്ക റിങ്ങ് ലാബ് മന്ത്രി എം

മണി ഉദ്ഘാടനം ചെയ്തു ചെമ്മണ്ണാർ സെന്റ് സേവിയേർസ് ഹയർ സെക്കന്റി സ്കൂളിലാണ് ആദ്യ ലാബ് ആധുനിക ശാസ്ത്ര സാങ്കേതിക സൌകര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകാൻ ലക്ഷ്യമിട്ടാണ് അടൽ ലാബുകൾ സ്ഥാപിക്കു ന്നത് കുട്ടികളെ സമരമുഖത്തേക്ക് കൊണ്ടുവരുന്നവർക്കെതിരെ ശക്ത മായ നടപടിയെടുക്കുമെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പി

കുട്ടികൾക്ക് അവരുടെ അവകാശ സംരക്ഷണത്തിനായി സമരം ചെയ്യാനവകാശമുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഫീൽഡ് ഔട്ട് റീച്ച് ബ്യൂറോ തൃശൂർ യൂണിറ്റ് കേന്ദ്ര ക്ഷേമ പദ്ധതികളെക്കുറിച്ച് ഇന്ന് കൈപ്പറമ്പ് പഞ്ചായത്തിൽ ബോധവത്ക്ക രണ പരിപാടി സംഘടിപ്പിക്കും

ആന്റോ പരിപാടി ഉദ്ഘാടനം ചെയ്യും ഐസിഡി എസ് കുടുംബശ്രീ എന്നിവയുടെ സഹകരണത്തോടെയാണ് പരി പാടി സംഘടിപ്പിച്ചിരിക്കുന്നത് കോഴിക്കോട്ടെ കനോലി കനാൽ ശുചീകരണ യജ്ഞം ഓപ്പറേ ഷൻ കനോലി കനാൽ ജനുവരി ഒന്നിന് മുൻപ് പൂർത്തീകരിക്കാൻ കോർപ്പറേഷൻ കൌൺസിൽ യോഗം തീരുമാനിച്ചു ഇതിന്റെ കൌണ്ട്ഡൌൺ നവംബർ ഒന്നിന് സരോവരം ബയോപാർക്കിൽ തുട ങ്ങും

അർഹരായ എല്ലാവർക്കും ആനുകൂല്യം നൽകിയതായി ജില്ലാ കല ക്ടർ അറിയിച്ചു ഇടുക്കി ജില്ലയിൽ ഉരുൾപൊട്ടലടക്കം പ്രകൃതി ദുരന്തങ്ങൾ നേരിട്ട പ്രദേശങ്ങളിലെ കുട്ടികളിൽ മാനസികാരോഗൃ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സ്കൂൾതല കൌൺസിലിംഗ് പരിപാടി ഇന്നാരംഭിക്കും രാവിലെ കല്ലാർകൂട്ടി ഗവൺമെന്റ് ഹൈസ്കൂളിലും ഉച്ചക്ക് വെള്ള ത്തൂവൽ ഗവൺമെന്റ് ഹൈസ്കൂളിലുമായിരിക്കും ഇന്നത്തെ കൌൺസിലിങ്ങ് സാമൂഹ്യനീതി വകുപ്പും കേരളാ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മറ്റിയും ചേർന്ന് ജില്ലയിലെ കാഴ്ച വൈകലൃം നേരിടുന്നവർക്ക് ഇന്ന് ദൂരന്ത് നിവാരണത്തിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കും